ബന്ധപ്പെട്ട് ത്രികക്ഷി സഖ്യം സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ വിധി പറയും

ജപ്പാനിൽ നിന്ന് ഏറെ പറ്റിക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് കർഷക ന് ക്ഷേമ ബോർഡ് രൂപീകരിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നതായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ കനകമല ഐ

കുറ്റക്കാരെന്ന് എൻ ഐ എ കോടതി കണ്ടെത്തി ഒരാളെ വെറുതെ വിട്ടു

പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം

സി

ഹർജിയിൽ വാദം പൂർത്തിയായി ദേവേന്ദ്ര ഫട്നവിസിന്റെ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് ഗവർണർ ഭഗത്സിങ് കോഷിയാരി സ്വീകരിച്ച തീരുമാനത്തിനെതിരെയാണ് ത്രികക്ഷി സഖ്യം കോടതിയെ സമീപിച്ചത്

ജസ്റ്റിസുമാരായ എൻ

രമണ അശോക് ഭൂഷൺ സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് മുഖ്യമന്ത്രി ജപ്പാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘത്തിന്റെ വിദേശ സന്ദർശനം തുടരുന്നു പ്രകൃതിദുരന്തങ്ങളെ നേരിടുന്നതിൽ കേരളത്തിന് ജപ്പാനിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രകൃതിദുരന്തങ്ങളെ ഫലപ്രദമായി നേരിട്ട രാജ്യമാണ് ജപ്പാനെന്നും ഒസാക്കയിലെ മലയാളി സമൂഹത്തിനായി സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു ഇന്നലെയാണ് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഉന്നതതല സംഘം ജപ്പാനിലെ ഒസാക്കയിലെത്തിയത്

പ്രതിസന്ധിഘട്ടങ്ങളിൽ കേരളത്തെ സഹായിച്ച പ്രവാസി മലയാളികളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു

ഇൌ മാസം ദാവരെ ജപ്പാനിലും അടുത്ത മാസം ഒന്നുമുതൽ നാലുവരെ കൊറിയയിലുമാണ് പരിപാടികൾ

സുധാകരൻ ദീർഘ കാലം നില നിൽക്കുന്ന റോഡുകൾ നിർമ്മിക്കാനാണ് ഗവ

സംസ്ഥാനത്ത് കാലാവസ്ഥയിൽ കാര്യമായ മാറ്റമാണ് ഉണ്ടുായിട്ടുള്ളത് ഇത് കാരണം കൂടുതൽ മാസവും റോഡ് നിർമ്മാണ്ടു ദൃഷ്കരമാവുകയാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂര് പ്പയ്യന്നൂർ വെള്ളൂർ റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്ന പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തോമസ് ഐസക് സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസനം കിഫ്ബിയിലൂടെ സാധ്യമാകുമെന്ന് മന്ത്രി ഡോ

ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ദേശീയപാതയിൽ സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയുടെ പിന്നിലിടിച്ചാണ് അപകടമുണ്ടായത് ഓട്ടോ യാത്രക്കാരായ മൂന്ന് സ്ത്രീകളും ഓട്ടോ ഡ്രൈവറുമാണ് മരിച്ചത് മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി സ്വകാര്യബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു

അപകടം നടന്ന ക്ടെട്ടിട്ടം പൊളിച്ചുമാറ്റാനും ഇന്നലെ നടന്ന സർവ്വകക്ഷി യോഗം തീരുമാനിച്ചു അതിനിടെ കുറ്റക്കാരായ അദ്ധ്യാപകരെ പുറത്താക്കണ്മെന്നാ വശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സ്കൂൾ കവാടത്തിൽ കുത്തിയിരീപ്പ് സമരം നടത്തുകയാണ് ഷെഹലയുടെ ഫോട്ടോയുമായാണ് വിദ്യാർത്ഥികൾ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്

മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന തിമ്മൻചാൽ നീർത്തടം മണ്ണ് ജല സംരക്ഷണ പദ്ധതി നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഫലപ്രദമായ പരിഹാരം കണ്ടെത്തുന്നതിനായി രാജ്യത്തു ആദ്യമായാണ് ഒരു സംസ്ഥാനം കർഷക ക്ഷേമ ബോർഡ് രൂപീകരിക്കുന്നത് ഇതിനായുള്ള ബില്ല് നിയമസഭ പാസാക്കിയതായും മൂന്നു മാസത്തിനകം ബോർഡുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുമെന്നും കാർഷിക സഹായ പദ്ധതികളിൽ ദേശസാൽകൃത ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലാണ് കർഷക സമൂഹത്തിന്റെ സമഗ്രവികസനത്തിന് പരമാവധി സഹായം ഉറപ്പാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും റവന്യൂമന്ത്രി വൃക്തമാക്കി

മൻസിദ് സാലിക് മുഹമ്മദ് സാഫ്യാൻ മൊയ്തീൻ റാഷിദ് അലി റംഷാദ് എന്നിവരെയാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് എല്ലാ പ്രതികൾക്കെതിരെയും കോടതി യു എ

ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും വിലയിലും വർദ്ധനയുണ്ട് വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ ഉള്ളി ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ പറയുന്നു ഉണ്ടായ വിളനാശമാണ് വില വർദ്ധനയ്ക്ക് കാരണം

വിശദാംശങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി ജഗനിവാസൻ

ഇന്നലെ രാത്രി മുതൽ ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി

എട്ടുദിവസത്തിനകം പണികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും നടന്നില്ല ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതോടെ കോഴിക്കോട് ഭാഗത്തു നിന്നുവരുന്ന വാഹനങ്ങൾ കടത്തിവിടാൻ ആരംഭിച്ചിരുന്നു

ഗ്രഹണസമയത്ത് ക്ഷേത്രനട തുറന്നിരിക്കുന്നത് ഉചിതമല്ലെന്നു ക്ഷേത്രം തന്തി കണ്ഠരര് മഹേഷ് മോഹനര് അറിയിച്ചതിനെ തുടർന്നാണിത്

സ്വർണ്ണ വിലയിൽ മാറ്റമില്ല

എൽ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിന്റെ രണ്ടാം പാദ പോരാട്ടങ്ങൾ ഇന്ന് ആരംഭിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബംഗളുരു എഫ്

ഇതുവരെ കളിച്ച നാല് മൽസരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രം വിജയിച്ച ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ്